ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റും കാലം ചെയ്തു ഖബറടക്കം നാളെ

വിക്ടേഴ് ചാനൽവഴി കോവിഡ് രോഗികൾക്ക് ഫോൺ ഇൻ കൺസൽട്ടേഷൻ നൽകുമെന്ന് മുഖ്യമന്ത്രി

അന്തർ സംസ്ഥാന യാത്രക്കാർക്കും പരിശോധന ആവശ്യമില്ല

ഭൌതിക ശരീരം അൽപസമയത്തിനകം തിരുവല്ല അലക്സാണ്ടർ മാർത്തോമ സ്മാരക ഓഡിറ്റോറിയം ഹാളിലേക്കു മാറ്റും വാർധക്യ സഹജമായ അസുഖങ്ങളെത്തുടർന്ന് മൂന്ന് വർഷമായി കുമ്പനാട്ടെ ആശുപത്രിയിൽ വിശ്രമത്തിലായിരുന്നു ന്യൂസ് ഡസ്കിൽ നിന്ന് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ രംഭ ആഴമേറിയ വിശ്വാസ പ്രമാണങ്ങൾ അത്രമേൽ സരസവും സരളവുമായി സാധാരണക്കാരിലേക്ക് എത്തിച്ച സന്യാസി വര്യനായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത കേരളത്തിന്റെ ആത്മീയ സാമൂഹിക മണ്ഡലത്തിൽ എന്നും നിറഞ്ഞുനിൽക്കുന്ന ദൈവത്തിന്റെ സ്വർണനാവിനുടമ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു ക്രിസോസ്റ്റം സ്വത സിദ്ധമായ നർമത്തിലൂടെ അദ്ദേഹം തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മെത്രാപ്പൊലീത്തയെന്ന ബഹുമതിയും ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന് സ്വന്തം

രും രാഷ്ട്ര പിതാവ് മഹാത്മാ ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ വി കല്യാണം അന്തരിച്ചു

മഹാത്മാഗാന്ധി വെടിയേറ്റു മരിക്കുമ്പോൾ വി കല്യാണം അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു

സംസ്കാരം ഇന്ന് ഒരു മണിക്ക് ബസന്റ് നഗർ ശ്മശാനത്തിൽ നടക്കും രുര സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം തരംഗത്തിൽ ഗ്രാമീണ മേഖലകളിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കേസുകൾ കൂടുന്ന പ്രവണതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു നഗരങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം വ്യാപിച്ചതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഗര ഗ്രാമ അന്തരം താരതമ്യേന കുറവാണെന്നതും ഗ്രാമീണ മേഖലകളിലും ആരോഗ്യ സംവിധാനങ്ങൾ സംസ്ഥാനങ്ങളേക്കാൾ മികച്ച മറ്റു രീതിയിലാണെന്നതും ആശ്വാസകരമായ കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി ദര ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഉണ്ടാകുന്ന വർദ്ധന കാണിക്കുന്നത് സംസ്ഥാനത്തു രോഗം ഉച്ഛസ്ഥായിയിലെത്താൻ ഇനിയും സമയം എടുക്കുമെന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗവ്യാപനം ഇനിയും കൂടുമെന്നതിനാൽ നഗരങ്ങളിലേതു പോലെത്തന്നെ ശക്തമായ നിയന്ത്രണങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും അനിവാര്യമാണ്

ഹോം ക്വാറന്റീനിൽ കഴിയുന്നവർ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം

കഴിയുന്നതും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ എടുക്കാവുന്ന ഏറ്റവും പ്രധാന മുൻ കരുതൽ നടപ്പ് ഓട്ടം വിവിധതരം കായികവിനോദങ്ങൾ മുതലായ വ്യായാമ മുറകൾക്കായി പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നത് കർശനമായി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദ്ദേ കോവിഡ് വ്യാപനം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പു വരുത്തുന്നതിന് കോഴിക്കോട് ജില്ലാ കലക്ടർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നി ർദ്ദേശം നൽകി ആംബുലൻസ് ഉൾപ്പെടെ രണ്ടിൽ കുറയാത്ത വാഹനങ്ങളെങ്കിലും ഓക്സിജൻ സൌകര്യത്തോടെ ലഭ്യമാക്കണം രാജ്യത്ത് രണ്ടാം കോവിഡ് തരംഗ സാഹചര്യത്തിൽ പരിശോധനാ മാനദണ്ഡങ്ങൾ പുതുക്കി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ നിർദേശം പുറപ്പെടുവിച്ചു

റാപിഡ് ആന്റിജൻ ടെസ്റ്റ് വർധിപ്പിക്കുന്ന നടപടികളുടെ ഭാഗമായി എല്ലാ ഗവൺമെന്റ് സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇതിന് അനുമതി നൽകണമെന്നും നഗരങ്ങളിലും പട്ടണങ്ങളിലും റാറ്റ് ബൂത്തുകൾ സ്ഥാപിക്കണമെന്നും ഐസിഎംആർ പറഞ്ഞു

രുര കോവിഡ് വ്യാപനപശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്കേർപ്പെടുത്തിയ വിലക്ക് അനിശ്ചിതകാലത്തേക്ക് നീട്ടി കഴിഞ്ഞ പതിനാലു ദിവസത്തിനുള്ളിൽ ഇന്ത്യ സന്ദർശിച്ചവരെയും ട്രാൻസിറ്റ് വിസക്കാരെയും യു എ ഇ ൽ പ്രവേശിപ്പിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു

മറ്റു ജില്ലകളിൽ ഇതിന് താഴെയാണ് രോഗികളുടെ എണ്ണം

ജനങ്ങൾ തമ്മിലെ സമ്പർക്കം വ്യാപാരം സമ്പദ് വ്യവസ്ഥ പ്രതിരോധം സുരക്ഷ കാലാവസ്ഥാ പ്രവർത്തനം ആരോഗ്യം എന്നീ മേഖലകളിൽ അടുത്ത പത്ത് വർഷം ശക്തവും ആഴമേറിയതുമായ ബന്ധങ്ങൾക്ക് മാർഗരേഖ വഴിയൊരുക്കും ഇരു നേതാക്കളും തമ്മിൽ ഇന്നലെ നടത്തിയ വെർച്വൽ ഉച്ചകോടിയിൽ കോവിഡ് സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ വാക്സിനുകളുടെ വിജയകരമായ പങ്കാളിത്തം ഉൾപ്പെടെ നിലവിലെ സഹകരണവും ചർച്ചാവിഷയമായി രാജ്യത്ത് ശക്തമായ കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടൻ വളരെ പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കിയതിന് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി മമത ബാനർജി ഇന്ന് സത്യ പ്രതിജ്ഞ ചെയ്യും രാവിലെ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജഗദീപ് ധൻകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും

മറ്റു മന്ത്രിമാർ നാളെ ചുമതലയേൽക്കും രംഭ തുഷാർ വെള്ളാപ്പള്ളി എൻഡിഎ കൺവീനർ സ്ഥാനം രാജിവച്ചേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനു പിന്നാലെയാണ് തീരുമാനം ഇന്നു രാവിലെ കൊല്ലത്ത് ബിഡിജെഎസ് നിർണായക സംസ്ഥാന കൌൺസിൽ യോഗം നടക്കും ഇതിനു പിന്നാലെ രാജി വയ്ക്കുമെന്നാണ് സൂചന രംഭ എറണാകുളം മുളന്തുരുത്തിയിൽ ട്രെയിനിൽ യുവതിയെ ആക്രമിച്ചയാളെ പോലീസ് പിടികൂടി

ജീവനക്കാരൻ മരിച്ചു

രുമ സംസ്ഥാനത്ത് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വയനാട് ജില്ലയിൽ ശക്തമായ മഴക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുണ്ട് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു രുഭ കോവിഡ് രോഗ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ ഭീതിയും ആശങ്കയും വളർത്തുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തി വ്യക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കലക്ടർ പൊലീസിന് നിർദ്ദേശം നൽകി ജില്ലയിൽ നിലവിൽ ബെഡ്ഡുകളുടെ ക്ഷാമമില്ല ഒഴിവുള്ള ബെഡ്ഡുകളുടെ എണ്ണം കോവിഡ് ജാഗ്രത പോർട്ടലിൽ കാണാൻ സാധിക്കുമെന്നും കലക്ടർ അറിയിച്ചു രും കോവിഡ് മഹാമാരി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ ആംബുലൻസുകളുടെ ലഭ്യത മോട്ടോർ വാഹനവകുപ്പ് ഉറപ്പ് വരുത്തി